നേപ്പാളിലെ റിസോർട്ടിൽ മരണമടഞ്ഞ തീരുവനന്തപുരം സ്വദേശികളായ അഞ്ചുപേരുടെ മൃതദേഹ്ങൾ സംസ്കരി ച്ചു കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ അൽപം മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു

നേപ്പാളില്പ് റിസോർട്ടിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച തിരുവനന്തപുരം സ്വദേശികളായ പ്രവീൺ കെ നായർ ഭാര്യ ശരണ്യ മക്കളായ ശ്രീഭദ്ര ആർച്ച അഭിനവ് എന്നിവരെ സംസ്കരിച്ചു

ദുരന്തത്തിൽ മരിച്ച കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി രഞ്ജി ത്ത് ഭാര്യ ഇന്ദുലക്ഷ്മി മകൻ വൈഷ്ണവ് എന്നിവരുടെ മൃതദേ ഹങ്ങൾ അൽപം മുൻപാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹി യിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നോർക്ക റൂട്ട്സ് അധികൃതരും ബന്ധുക്കളും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് മൊകവൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകീട്ടോടെ കുന്ദമംഗലത്തെ തറവാട് വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തും

ന്യൂഡൽഹി രാജ്പഥിൽ നടക്കുന്ന പ്രധാന ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദൃം സ്വീകരിക്കും ബ്രസീൽ പ്രസിഡണ്ട് ജെയർ മെസിയാസ് ബൊൽസൊനാരോ ആണ് ഈ വർഷ്ടത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി വ്യോമസേനയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ചിനൂക്ക് അപ്പാച്ചെ ഹെലികോപ്ടറുകളും സുഖ്ചോയ് പ്രിമാനങ്ങളും റിപ്പ ബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കും റഫേൽ ്യുദ്ധവിമാനത്തിന്റെ മാതൃകയും വ്യോമസേന ടാബ്ലോ രൂപത്തിൽ അവതരിപ്പിക്കും കോഴിക്കോട് പന്തീരാങ്കാവിൽ അറസ്റ്റിലായ അലനും താഹയ്ക്കും മാവോയിസ്റ്റ് ബന്ധമില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞി ട്ടില്ലെന്ന് മുതിർന്ന സിപിഐഎം നേതാവ് എംവി ഗോവിനന്ദൻ തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു അവർ മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ ഇഷ്ട പ്രകാരം ചൂമത്താവുന്ന നിയമമല്ല യുഎപിഎ എന്നും അദ്ദേഹം വാർത്താചാനലിനോട് പറഞ്ഞു സംസ്ഥാന് ഗവർണർ കേരളവിരുദ്ധ പ്രചാരവേല നടത്തുക യാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി സംഘപരിവാർ കേന്ദ്രങ്ങളിലെ സ്വാധീനം വർധിപ്പിക്കാനാണ് ഗവർണറുടെ ശ്രമ മെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളജിലെ പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമാണം വൈകിട്ട് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും അമൃത് പദ്ധതിയിൽ ഉൾപെടുത്തി നഗരസഭ യാണ് പ്ലാന്റ് നിർമിക്കുന്നത്

തൃശൂർ വിജിലൻസ് കോടതിയാണ് കേസ് മാറ്റിവെച്ചത് ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗ ണിക്കും പഴയ ഫീസ് ഘടനയിൽ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേ ഷൻ പൂർത്തിയാക്കാൻ ഇടക്കാല ഉത്തരവിറക്കണമെന്നും ലേറ്റ് ഫീ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി പ്ര കൊറോണ വൈറസ് ബാധിതമായ ചൈനയിലെ വു ഹാനിൽ നിന്ന് കോട്ടയത്ത് മടങ്ങിയെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥി നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യ വകുപ്പ് നിലവിൽ ആരോഗ്യനിലയിൽ പ്രശ്നമില്ലന്ന് ഡി എം ഒ അറിയിച്ചു ചൈനയിലും സമീപപ്രദേശങ്ങളിലും കൊറോണ വൈറസ് ബാധ പടരുന്നതായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലും മുൻകരൂതലുകൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ വി വി ഷേർളി അറിയിച്ചു

ചൈനയിൽ കൊറോണ വൈറസ് റിപ്പോർട് ചെയ്ത സാഹചര്യത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലും ആരോഗ്യവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്

എയർപോർട്ടിലെ ആരോഗ്യവിഭാഗത്തിന്റേയും സ്ഥകാര്യമെഡിക്കൽ യൂണിറ്റിന്റെ സേവനവും പ്രയോജനപ്പെത്തുന്നുണ്ട്

ന്യൂസിലാന്റിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളും രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും ടീം ഇന്ത്യ കളിയ്ക്കും

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും

ഏഴ് സംസ്ഥാനങ്ങളിലെയും ഡാമൻ ഡിയുവിലെയും പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും ലൈഫ് മിഷൻ ഗുണഭ്ടോക്താക്കളുടെ ജില്ലാതല സംഗമം നാളെ കാസർകോഡ് മുൻസിപ്പൽ ടൌൺഹാളിൽ നടക്കും രാവിലെ പത്തിന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും

കേരള സ്റ്റേറ്റ് ടെംപിൾ എംപ്ലോയീസ് കോ ഓർഡിനേഷൻ കമ്മ റ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും മലബാർ മേഖലയിലെ ക്ഷേത്ര ജീവനക്കാരോട് സംസ്ഥാന ഗവൺമെന്റ് തുടരുന്ന നീതി നിഷേധ ത്തിനെതിരെയാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ കോഴി ക്കോട്ട് അറിയിച്ചു

മന്ത്രി ടി പി രാമകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കും പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരത്തിൽ പങ്കെടുത്തതിന് എംജി സർവ്വകലാശാല ജീവനക്കാർക്കെതിരെ പരാതി ഗവർണർക്കാണ് കണ്ണൂർ സ്വദേശി പരാതി നൽകിയത്

കളിയിക്കാവിള ചെക്പോസ്റ്റിൽ ജോലിയ്ക്കിടെ കൊല്ലപ്പെട്ട എഎസ്ഐ വിൽസണെ കുത്താൻ പ്രതികൾ ഉപയോഗിച്ച കത്തി തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തി തമ്പാനൂരിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകുന്നതിന് മൂൻപ്പ് ക ത്തി ഉപേക്ഷിക്കുകയായിരുന്നെന്ന് പോലീസ് അറിയിച്ചു പ്രതികൾ വിത്സനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് ഇന്നലെ പോലീസ് എറണാകുളം കെ എസ് ആർ ടി സി പരിസരത്തെ ഓടയിൽ നിന്നും കണ്ടെത്തിയിരുന്നു തിരുവന്തപുരം കാട്ടാക്കടയിൽ മണ്ണെടുപ്പ് ചോദ്യംചെയ്ത ഭൂവുടമ സംഗീതിനെ മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് കൊലപ്പെടു ത്തിയ സംഭവത്തിൽ ഓപ്പറേറ്റർ പൊലീസിൽ കീഴടങ്ങി പ്രതികളി ലൊരാളായ വിജിനാണ് രാവിലെ കീഴടങ്ങിയത് മറ്റു പ്രതി കൾക്കായി പൊലീസ് അനേഷണം തുടരുന്നു ഇന്ന് പുലർച്ചെയാണ് കാട്ടാക്കട അമ്പലത്തിൻകാല സ്വദേശി സംഗീതിനെ ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തിയത് സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ധന വില കുറഞ്ഞു

സ്വർണ്ണ വിലയിൽ വീണ്ടും വർധന

വയനാട്ടിൽ ഒരാളിൽ കൂടി കുരങ്ങുപന്നി സ്ഥിരീകരിച്ചു തിരുനെല്ലി അപ്പപ്പാറ സ്വദേശിനിക്കാണ് രോഗ്ം സ്ഥിരീകരിച്ചത് നിലവിൽ ഈ പ്രദേശത്തെ ദ പ്പേർക്ക് കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവർ ചികിത്സയിലാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് മലപ്പുറം ജില്ലാ കമ്മ റ്റിയും ഏറനാട് താലൂക്ക് കമ്മറ്റിയും സംയുക്തമായി സംഘടിപ്പി ക്കുന്ന അന്ധക്ഷേമ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം മല പ്പുറം കോട്ടക്കുന്നിലെ ഭാഷാ സ്മാരക ഹാളിൽ നാളെ നടക്കും

ഇതിന്റെ ഭാഗമായി കലാപ്പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് മലപ്പുറം കൂട്ടിലങ്ങാടി ഓട്ടോയിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു കടുങ്ങൂത്ത് നെല്ലിയാലിൽ നൌഷർ ബാബുവാണ് മരിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കടുങ്ങൂത്ത് ജുമാമസ്ജി ദിന് സമീപം പുലർച്ചെയായിരുന്നു അപകടം തിരുവനന്തപുരം റീജ്യണൽ ഔട്ട്റീച്ച് ബ്യൂറോ ശുചിത്വ കർമപദ്ധതി മുൻനിർത്തി കൊല്ലം ശ്രീനാരായണ കോളേജിൽ പ്രത്യേക ജനസമ്പർക്കപരിപാടി സംഘടിപ്പിച്ചു വിവിധ കേന്ദ്രപദ്ധതികളെ കുറിച്ച് വിദഗ്ധർ ക്ലാസെടുത്തു